കടലാസ് രഹിത നിയമസഭ എന്ന ലക്ഷ്യവുമായി നടപ്പാക്കുന്ന ഇ നിയമസഭ യുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് സമ്മേളനത്തിൽ തുടക്കം കുറിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ സാമ്പിൾ പരിശോധനയ്ക്ക് ആല പ്പുഴ ഉൾപ്പെടെ നാലു സ്ഥലങ്ങളിൽ ലാബുകൾ സജ്ജമാക്കിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

സംസ്ഥാനത്ത് വൈറസ് പ്രതിരോധത്തിന് ശക്തമായ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ കിഫ്ബി വഴി അടിസ്ഥാന സൌകര്യ വികസനത്തിന് എല്ലാ പ്രദേശങ്ങൾക്കും അർഹമായ പരിഗണന നൽകി വികസനമുന്നേറ്റം നടത്താൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

രാവിലെ ഒമ്പ തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പതിനാലാം സഭയുടെ പതിനെട്ടാം സമ്മേളനം തുടങ്ങുക വ്യാഴാഴ്ച സഭ ചേരില്ല വെള്ളിയാഴ്ച മുൻമന്ത്രി തോമസ്ചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സഭ പിരിയും ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൻ മേൽ ചർച്ച തിങ്കളാഴ്ച ആരംഭിക്കും മൂന്ന് ദിവസമാണ് ചർച്ചക്കായി നീട്ടിവെച്ചിരിക്കുന്നത്

തോമസ് ഐസക് സഭയിൽ അവതരിപ്പിക്കും അടുത്തമാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റിന്മേൽ ചർച്ച നടക്കും

സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം വർധിപ്പി ക്കുന്നതിന് ബിൽ അടുത്ത മാസം ആറിന് നിയമസഭയിൽ അവതരിപ്പിച്ചേ ക്കും ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസിൽ ഒപ്പു വെക്കാൻ ഗവർണർ വിസ മ്മതിച്ചതിനെ തുടർന്നാണ് നിയമസഭയിൽ ബിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെ ടണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രമേയത്തിന്റെ കാര്യ ത്തിൽ കാര്യോപദേശക സമിതി തീരുമാനമെടുക്കും കടലാസ് രഹിത നിയമസഭ എന്ന ലക്ഷ്യവുമായി നടപ്പാക്കുന്ന ഇ നിയമസഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ തുടക്കം കുറിക്കുമെന്ന് സ്പീക്കർ പി

കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ആല പ്പുഴ ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ കൂടി ലാബുകൾ സജ്ജമാക്കിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

സംസ്ഥാനത്ത് കൊറോണ വൈറസ് പ്രതിരോധത്തിന് ശക്തമായ നടപടി സ്വീകരിച്ചുവരുന്നതായി മന്ത്രി കെ

സംസ്ഥാനത്ത് ആർക്കും കൊറോണ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ തിരുവ നന്തപുരത്ത് പറഞ്ഞു

പത്തു പേരുടെ സാമ്പിളുകൾ പൂനെ വൈറോ ളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ചതിൽ ആറു പേർക്കും രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും നാലു പേരുടെ ഫലം വരാനുണ്ടെന്നും മന്ത്രി പറ ഞ്ഞു

സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ നിരീക്ഷണത്തിലുളളതും ജില്ലയിലാണ് കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിൽ കുടുങ്ങികിടക്കുന്ന വിദ്യാർഥികളുൾപ്പെടെയുള്ളവരെ ഉടൻ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നട പടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി പ്രധാനമ ന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചു അടിസ്ഥാന സൌകര്യ വികസനം ഏതെങ്കിലുമൊരു മേഖലയിൽമാത്രം കേന്ദ്രീകരി ക്കാതെ കിഫ്ബിയിലൂടെ എല്ലാ പ്രദേശങ്ങൾക്കും അർഹമായ പരിഗണന നൽകി സംസ്ഥാനത്തൊട്ടാകെ വികസന മുന്നേറ്റം നടത്താൻ സാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിക്സനത്തിന്റെ ഫലങ്ങൾ എത്തു ന്നില്ലെന്ന് മുൻകാലങ്ങളിൽ പരാതി ഉയർന്ന മലബാർ മേഖലയിൽ കോടിക്ക ണക്കിന് രൂപയുടെ വികസനമാണ് ഗവൺമെന്റ് നടപ്പാക്കിയതെന്നും കിഫ്ബിയുടെ രൂപീകരണം ഇതിന് ഊർജ്ജം പകർന്നെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു കാസർകോട്ട് കിഫ്ബിയുടെ കേരള നിർമ്മിതി എന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

അഞ്ചു മൽസര പരമ്പരയിൽ ആദ്യ രണ്ടു മൽസർങ്ങളിലും വിജയിച്ച ഇന്ത്യ മുന്നിലാണ് ഇന്നത്തെ കളി ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര ഉറപ്പിക്കാം

കൊല്ലത്ത് നടക്കുന്ന പത്താമത് ദേശീയ സീനിയർ വനിതാ ഹോക്കി ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലെ കാർട്ടർ ഫൈനലുകൾ ഇന്ന് നടക്കും ശനിയാഴ്ചയാണ് ബി ഡിവിഷൻ ഫൈനൽ കേരള ടീം ഉൾപ്പെടുന്ന എ ഡിവിഷൻ മത്സരങ്ങൾ നാളെ ആരംഭിക്കും

ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കാൻ വിവര ശേഖരണം നടത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് എൻ

ആർ പുതുക്കുന്ന നടപടികൾ ഗവൺമെന്റ് നിർത്തിവച്ചതാണെന്നും ഇതുസംബന്ധിച്ച വിവരങ്ങൾ സെൻസസ് ചാർജ് ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും നേരത്തെതന്നെ നൽകിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണ ഉണർത്താൻ കാഞ്ഞങ്ങാട് ചമ്മട്ടംവയ ലിൽ നിർമിച്ച ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണ റായി വിജയൻ നാടിന് സമർപ്പിച്ചു

മാധവൻ ഫൌണ്ടേഷന്റെ നേതൃത്വ ത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെയാണ് സ്മാരകം നിർമിച്ചത്

കൂടംകുളം ലൈൻ യാഥാർഥ്യമായതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രസരണ നഷ്ടം കൂടാതെ വൈദ്യുതി വാങ്ങിക്കാൻ നമുക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുതി ബോർഡിന്റെ കണ്ണൂർ ജില്ലാതല അദാലത്ത് ഉദ്ഘാടനം ചെയുകയായിരുന്നു മന്ത്രി ഇടുക്കിയിൽ മത്സൃകൃഷി വ്യാപിപ്പിച്ച് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടു ന്നതായി മന്ത്രി ജെ മേഴ്സികുട്ടിയമ്മ പറഞ്ഞു വെള്ളത്തൂവൽ പഞ്ചായത്തി ലെ ചെങ്കുളത്ത് മത്സ്യ വിത്തുത്പാദന കേന്ദ്രത്തിനായി കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിലവിലെ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി കലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനവും നിറവേറ്റണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഐ

ഒ പ്രഖ്യാപനവും പഞ്ചായത്ത് ജീവനക്കാരെ ആദരിക്കലും ഹരിത കർമ്മ സേന അംഗങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

പി രാമകൃഷ്ണൻ പറഞ്ഞു

ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീക രണം ആരംഭിച്ച ദിവസമെന്ന നിലയിലാണ് മാധ്യമദിനം സംഘടിപ്പിക്കുന്നത്

കുതിരാൻ മേഖലയിൽ പവ്വർഗ്രിഡ് കോർപ്പറേഷന്റെ ഭൂഗർഭ കേബിളുകൾ സ്ഥാപി ക്കുന്നതിന് ട്രയൽ റൺ തുടങ്ങി തൃശൂർ പാലക്കാട് ദ്ദേശീയ പാതയിലെ കു തിരാൻ ഭാഗത്ത് വാഹന കുരുക്കില്ലാത്ത വിധം ഗതാഗത് നിയന്ത്രണമേർപ്പെടു ത്തിയാണ് ട്രയൽ റൺ

പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ഭാർവാഹനങ്ങളാണ് തുരങ്കത്തിലൂ ടെ കടത്തിവിട്ടത്

പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഷട്ടറുകൾ എന്നിവിടങ്ങളിലും സമിതി പരിശോധന നടത്തി

പട്ടികജാതി പട്ടിക വർഗക്കാർക്കെതിരായ അതിക്രമങ്ങളിൽ കുറവു വന്നിട്ടില്ലെന്നും ഇതുതടയാൻ ഗവൺമെന്റ് തലത്തിൽ ഇനിയും ഇടപെടലുകൾ ആവശ്യമാ ണെന്നും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി പറഞ്ഞു തൃശൂരിൽ രണ്ടുദിവസത്തെ ജില്ലാ പരാതി പരി ഹാര അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ സേവന വേതന കരാർ പുതുക്കണമെന്നതുൾപ്പെടെ വിവിധ ആവ ശ്യങ്ങളുന്നയിച്ച് ബാങ്ക് ജീവനക്കാർ വെള്ളി ശനി ദിവസങ്ങളിൽ രാജ്യവ്യാ പകമായി പണിമുടക്കും

പൌരത്വ നിയമ ഭേദഗതിക്ക് എതിരെ ദളിത് ആദിവാസി നേതാക്കളെ അണിനിരത്തി എറണാകുളത്തും കോഴിക്കോട്ടും ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം

ഭരണഘടനാ മൂല്യങ്ങൾ ട തകർക്കുന്നവർക്ക് അംബേദ്കറുടെ ഭരണഘടനയാണ് മറുപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വതന്ത്ര്യം നിലനിൽക്കുന്നതിന്റെ പേരിലാണ് ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം ഷിബു മീരാൻ പറഞ്ഞു ഇന്ത്യൻ ദേശീയത സമകാലിക വായന എന്ന വിഷയ ത്തിൽ മാനന്തവാടിയിൽ മുസ്ലിം യൂത്ത്ലീഗ് സംഘടിപ്പിച്ച പൊതുവിചാരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എതിരെ പരാതികൾ വർധിച്ചുവരുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ പറഞ്ഞു കൊല്ലത്ത് നടന്ന മെഗാ അദാലത്തിലാണ് കമ്മീഷന്റെ പരാമർശം

ഡിപ്പാർട്ട്മെന്റൽ ഹയർസെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് ് ആരംഭിക്കും പ്രതിനിധി സമ്മേ ളനം നാളെ കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും